മെസിയസ് ബോൾസനാരോയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും

സ്കൂളുകളിൽ നടത്താനാവില്ലെന്നും അത്തരം സ്കൂളുകൾ അടച്ചുപൂട്ടാൻ നടപടി വേണമെന്നും കേരള ഹൈക്കോടതി

വിവിധ ഉടമ്പടികളിൽ ഇരുവരും ഒപ്പുവയ്ക്കും നാളെ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിന് ബ്രസീലിയൻ പ്രസിഡന്റാണ് മുഖ്യാതിഥി ഇന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ സന്ദർശിക്കുന്ന ബ്രസീലിയൻ പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ വരവേൽപ്പ് നൽകും രാഷ്ട്രീയം സാമ്പത്തികം പ്രതിരോധം കൃഷി തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഇരുരാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധം ഉറപ്പിക്കാൻ ഈ സന്ദർശനം പ്രയോജനകരമാകും ബ്രസീലിയൻ പ്രസിഡന്റിന് സ്വാഗതമർപ്പിച്ച് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

മുരളീധരന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹി പാലം എയർഫോഴ്സ് സ്റ്റേഷനിൽ ബ്രസീലിയൻ പ്രസിഡന്റിന് ഊഷ്മള വരവേൽപ്പ് നൽകി ഏട്ട് ബ്രസീലിയൻ മന്ത്രിമാരും നാല് പാർലമെന്റ് അംഗങ്ങളും ഉന്നതതല ഉക്പ്പോർഗ്ഗ്ഥ സംഘവും വ്യവസായ പ്രതിനിധികളും അദ്ദേഹത്തെ ആറ്റുഗ്മിക്കുന്നുണ്ട്

ആകാശവാണിയുടെയും ദൂര്ഭൂർശന്റെയും എല്ലാ നിലയങ്ങളും രാത്രി ഏഴ് മണി മുതൽ ഹിന്ദിയിലുള്ള സന്ദേശവും തുടർന്ന് അതിന്റെ ഇംഗ്ലീഷ് പകർപ്പും പ്രക്ഷേപണം ചെയ്യും

പരിപാടിയുടെ അറുപത്തി ഒന്നാമത് പതിപ്പാണ് നാളെ വൈകിട്ട് ആറുമണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നത്

ന്യൂഡൽഹിയിലെ മുസ്തഫബാദിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഉടമസ്ഥാവകാശം നൽകിയതായി ആഭ്യന്തരമന്ത്രി പറഞ്ഞു ചേരികളിൽ താമസിക്കുന്നവർക്ക് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഗവൺമെന്റ് രണ്ടുമുറി വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കരവാൾ നഗറിലെയും ഗോകുൽപൂരിലെയും രണ്ട് റാലികളെ അദ്ദേഹം അഭിസംബോധന ചെയ്തു

യുവാക്കളും ന്യൂനപക്ഷ വിഭാഗവും ഉൾപ്പെടെയുള്ള നിഷ്കളങ്കരായ ഇന്ത്യൻ ജനതയെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പ്രചരണം നടത്താൻ ചിലർ ശ്രമിക്കുന്നതായി പ്രതിനിധി സംഘം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് നൽകിയ നിവേദനത്തിൽ പറയുന്നു രാജ്യത്ത് ഉണ്ടാകുന്ന അഭിപ്രായ ഭിന്നതയ്ക്ക് ഒരു വിദേശതലം കൂടിയുള്ളതായി തങ്ങൾക്ക് അനുഭവപ്പെടുന്നുവെന്നും ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ഗവൺമെന്റ് ശക്തമായ നടപടിയെടുക്കണമെന്നും സംഘം അഭ്യർത്ഥിച്ചു ലോകം മുഴുവൻ ഒരു കുടുംബത്തിന്റെ ഭാഗമാണ് എന്ന രാഷ്ട്രത്തിന്റെ പുരാതന സന്ദേശം ലോകത്തുടനീളം വ്യാപിപ്പിക്കാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങളെ അവർ പ്രകീർത്തിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

തെരുവുകളിലൂടെയല്ല രാജ്യം മുന്നോട്ട് നീങ്ങുന്നത് പാർലമെന്റിലൂടെയാണെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ എല്ലാ പൌരൻമാർക്കും പ്രതിഷേധിക്കാൻ അവസരമുണ്ട് പക്ഷേ അത് സത്യവും കൃത്യവുമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാകണമെന്നും അദ്ദേഹം പറഞ്ഞു

ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരമൂല്യങ്ങളുടെ ലംഘനമാണ് ഇത്തരം ക്ലാസുകൾ പ്രത്യേക മതവിഭാഗത്തിന്റേതായ മതപഠന ക്ലാസുകൾ നടത്തുന്നതായി കണ്ടെത്തിയ സ്കൂൾ അടച്ചുപൂട്ടാൻ നടപടിയെടുത്ത വിദ്യാഭ്യൂർസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഉത്തരവിൽ അപാകതയില്ലെന്നുംഹൈക്കോടതി പറഞ്ഞു

സംസ്ഥാനത്തിന് മൊത്തം ബാധകമാക്കി സ്കൂളുകളിൽ മൃതപഠനം നിരോധിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും ഹൈഷ്ക്കോട്ടതി പറഞ്ഞു

ശക്തമായ ജനാധിപത്യത്തിന് തെരഞ്ഞെടുപ്പ് അവബോധം എന്നതാണ് ഈ വർഷത്തെ സമ്മതിദായക ദിന പ്രമേയം

തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസ് മനേക്ഷു സെന്ററിൽ സംഘടിപ്പിക്കുന്ന പ്രധാന പരിപാടിയിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് മുഖ്യ അതിഥിയാകും സംസ്ഥാന ജില്ലാ തലങ്ങളിൽ മികച്ച തിരഞ്ഞെടുപ്പ് നടപടികൾ കൈക്കൊണ്ട ഉദ്യോഗസ്ഥർക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്യും

ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഫോറത്തിന്റെ പത്താമത് വാർഷിക സമ്മേളനത്തിൽ ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കെ

പുതിയ സാമ്പത്തിക പരിഷ്ക്കാരങ്ങളിലൂടെ ബഹുമുഖ വ്യാപാര മേഖലയിൽ ഇടപെടാനുള്ള സന്നദ്ധത കൂടിക്കാഴ്ചയിൽ ചർച്ചയായി ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഉച്ചകോടിയിൽ സംബന്ധിക്കാനായി ദാവോസിലെത്തിയതാണ് ശ്രീ

സുതാര്യവും വിവേചന രഹിതവുമായ സാമ്പത്തിക പരിഷ്ക്കാരങ്ങൾ നടപ്പാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്ന് കേന്ദമന്ത്രി പറഞ്ഞു സുരക്ഷിതമായി നിക്ഷേപം നടത്താവുന്ന രാജ്യമായി ഇന്ത്യ മാറി നിക്ഷേപ വർദ്ധനയിലൂടെ രാജ്യം സാമ്പത്തിക്ട്ര സ്ഥിരതയിലേക്ക് കുതിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

രാജ്യത്ത് ഇതുവരെ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചിട്ടില്ല

പൂനൈയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാമ്പിളുകളുടെ പരിശോധനയ്ക്ക് പ്രത്യേക സംവിധാനമേർപ്പെടുത്തിയതായും മന്ത്രാലയം അറിയിച്ചു

ഇയാൾ ചൈനയിലെ വുഹാൻ പ്രദേശത്ത് നിന്നും തിരികെ എത്തിയതാണ് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം സാമ്പിളുകൾ ലോകാരോഗ്യ സംഘടനയുടെ ഹോങ്കോങ്ങിലുള്ള പരിശോധന കേന്ദ്രത്തിൽ അയച്ചിട്ടുണ്ടെന്ന് നേപ്പാൾ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നിലവിൽ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും ഈ വ്യക്തിയേയും ഇയാളുമായി ബന്ധമുള്ളവരേയും നിരീക്ഷിച്ചുവരികയാണ്

തുടർന്ന് ഫെബ്രുവരി അഞ്ചു മുതൽ ഏകദിന പരമ്പര ആരംഭിക്കും

അന്വേഷണത്തിൽ ആയിരം കോടി രൂപയിലധികം വെളിപ്പെടുത്താത്ത വിദേശ ആസ്തി കണ്ടെത്തി